നാഴി ഇന്ന് തമിഴ്നാട്ടിൽ രാജ്യരക്ഷാ മന്ത്രി നിർമ്മല സീതാരാമൻ ഉദ്ഘാടനം ചെയ്യും

ഹിപ്പിക്കുന്നതിൽ സിനിമാ മേഖലയുടെ പങ്ക് വളരെ വലുതാണെന്ന് പ്രധാനിമന്ത്രി

വ്യവസ്ഥയിൽ അഞ്ച് ലക്ഷം യു എസ് ഡോളർ കൈവരിക്കാനുള്ള ശേഷിയിലേയ്ക്ക് ഇന്ത്യ ഉയരു മെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു

രാജ്യത്തെ രണ്ടാമത്തെ പ്രതിരോധ വ്യവസായ ഇടനാഴിയാണിത് ചടങ്ങിൽ പ്രതിരോധ സാ്ബ്ധിയായ മൂന്ന് ധാരണാപത്രങ്ങളിൽ ഒപ്പുവെയ്ക്കും തുടർന്ന് ഗ്രീമതി നിർമ്മല സീതാരാമൻ ത്രിച്ചിയിൽ നിന്നും വീഡിയോ കോൺഫറൻസിംഗിലൂടെ കോയമ്പത്തൂർ പ്രതിരോധ ഇന്നോവേഷൻ ഹബ്ബ് ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ ആഗസ്റ്റിൽ രാജ്യത്തെ ആദ്യത്തെ പ്രതിരോധ വൃവസായ ഇടനാഴി ഉത്തർപ്രദേശിലെ അലിഗറിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു രാജ്യത്ത് പ്രതിരോധ ഉത്പാദനം ത്രിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതാണ് രണ്ട് പ്രതിരോധ ഇടനാഴികൾ ത്രിച്ചി സേലം ഹൊസൂർ കോവായ് മധുരൈ എന്നീ ആറ് നോഡുകളാണ് തമിഴ്നാട്ടിലെ ഇടനാഴിയിൽ ഉള്ളത്

രാജ്യത്തെ സിനിമ വ്യവസായത്തിന് താമസിയാതെ ഏകജാലകം ക്കിയറൻസ് സംവിധാനം ഒരുക്കുമെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു മുംബൈയിൽ ഇന്ത്യൻ സിനിമ ദേശീയ മ്യൂസിയം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിനിമാ ചിത്രീകരണത്തിന് അനുമതി ലഭിക്കുന്നത് ഉൾപ്പെടെ ആവശ്യമായ എല്ലാ സംവിധാനവും ഒരുക്കുന്നത് ലക്ഷ്യമാക്കി വെബ്പോർട്ടലും നിലവിൽ വരുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു വ്യവസായ സൌഹൃദ രാജ്യമായി ഇന്ത്യയെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ മേഖലകളിൽ നടപ്പില്റ്ക്കി വരുന്ന പരിഷ്ക്കരണ നടപടികൾ സിനിമാമേഖലകളിലേക്കും വ്യാപിപ്പിക്കും

ഈ ഭേദഗതി നിലവിൽ വരുന്നതോടെ സിനിമകളുടെ വ്യാജപ്പതിപ്പ് ഇറക്കുന്ന്വ്ർക്ക് കടുത്ത ശിക്ഷ ഉറപ്പാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു സ്നീനിമാ വ്യവസായത്തെ ശാക്തീകരിക്കാൻ ഗവണ്മെന്റ് തയ്യാറാണെന്നു് ്അദ്ദേഹം അറിയിച്ചു സ്ത്രീശാക്തീകരണം കായികം തുടങ്ങിയ നിരവധി സാമൂഹിക വിഷയങ്ങൾ ഈ കാലത്തെ സിനിമയുടെ ഇതിവൃത്തമാകുന്നത് പ്രശംസനീയമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു സിനിമാ നിരൂപകരുടെയും ആസ്വാദകരുടെയും മാത്രമല്ല സന്ദർശകരുടെയും മനംകവരുന്ന ദൃശ്യങ്ങളിലൂടെയും പ്രദർശനങ്ങൾ എന്നിവയിലൂടെയും ഇന്ത്യയുടെ നൂറ്റാണ്ട് നീളുന്ന സിനിമാ ജൈത്രയാത്ര ആസ്വദിക്കാൻ ദേശീയ സിനിമാ മ്യൂസിയം അവസരം ഒരുക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ കേന്ദ്ര മന്ത്രി രാജ്യവർദ്ധൻ രാത്തോഡും സന്നിഹിതനായിരുന്നു

ഹൈദ്രാബാദിലെ ഭഗ വാൻ മഹാവീർ വീകലാംഗ് സാഹിത്യ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സാംസ്കാരിക പരിപാടിയിൽ സംസാ രിക്കുകയായിരുന്നു അദ്ദേഹം അവഹേളിക്കാൻ ആർക്കും അവകാശമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ഥാപനങ്ങളും ജനങ്ങളും ഭിന്നശേഷികാർക്ക് പിന്തുണ നൽകേണ്ടതും അന്തസ്സായ ജീവിതം നയിക്കാൻ അവരെ പ്രാപ്തരാക്കേണ്ടതുമാണ് ഇത് സമൂഹത്തിന്റെ കൂട്ടുത്തരവാദിതമാ ണെന്നും ശ്രീ

വെങ്കയ്യനായിഡു പറഞ്ഞു

ആചാര പ്രകാരം ഇന്ന് രാവിലെ പന്തളം രാജ പ്രതിനിധിയുടെ അയ്യപ്പ ദർശനത്തിനു ശേഷമാണ് ക്ഷേത്രനട അടച്ചത്

ഭക്ത്സംഗമത്തോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ഒരുമണിമുതൽ തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

എസ് ഡോളർ കൈവരിക്കാനുള്ള ശേഷിയിലേയ്ക്ക് ഇന്ത്യ ഉയരുമെന്ന് കേന്ദ്ര വ്യോമയാനമന്ത്രി സുരേഷ് പ്രഭു കൂടുതൽ വിവരങ്ങളുമായി ഷീജ ഗണേഷ്

നിർമ്മാണ സേവന മേഖല കൃഷി തുടങ്ങിയവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ഒരു റോഡ് മാപ്പ് തയ്യാറാക്കിയതായി അദ്ദേഹം പറ ഞ്ഞു ഇതിലൂടെ ഇന്ത്യയ്ക്ക് ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേയ്ക്കുള്ള കയറ്റുമതി വർദ്ധിപ്പിക്കാൻ സാധിക്കും

ധൊളേർയിലും അങ്കലേശ്വറിലും വിമാനത്താവളങ്ങൾ സ്ഥാപിക്കുന്നതിനായി ഗുജറാത്ത് ഗവൺമെന്റും എയർപോർട്ട് അതോറിറ്റിയും തമ്മിൽ രണ്ട് ധാരണാപ ത്രത്തിൽ ഒപ്പുവച്ചു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഹോവിറ്റ്സർ ആയുധങ്ങൾ ഇതിലൂടെ നിർമ്മിക്കാം

തെക്കൻ ഗുജറാത്തിയിലെയും അയൽ സംസ്ഥാനങ്ങളിലെയും നിരവധി ക്യാൻസർ രോഗികൾക്ക് ആശ്വാസ മായിരിക്കും ഈ പുതിയ ആശുപത്രി ധാദ്ര ആന്റ് നാഗർ ഹവേലി യിലെ ആദ്യ മെഡിക്കൽ കോളേജിനും പ്രധാനമന്ത്രി ഇന്നലെ തറക്ക ല്ലിട്ടു അഴിമതി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനുള്ള പ്രതിഷേ ധമായാണ് രാജ്യത്ത് പ്രതിപക്ഷ മഹാ ഐക്യം രൂപീകരിക്കാൻ കാരണമായതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ബി എസ്

ഈ അവസരത്തിൽ യോഗൃത നേടാത്ത വിദ്യാർത്ഥികൾക്ക് ഏപ്രിലിൽ നടത്തുന്ന പരീക്ഷ എഴുതാൻ അവസരം ലഭിക്കും അടുത്തമാസം ഒമ്പതോടെ അപേക്ഷാ ഫോമുകൾ ലഭ്യമായിത്തുടങ്ങും

ഇ റെയിൽവേ പി

കഴിഞ്ഞ ദിവസം ആകാശവാണിയുടെ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ജ്യോതി ശർമ്മ വ്യക്തമാക്കി

ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഭീകരസംഘടനയായ ജെയ്ഷ ഇ മുഹമ്മദ് ഏറ്റെടുത്തു

ശക്തമായ ഡെൽറ്റ ഫോർ ഹെവി റോക്കറ്റാണ് നാഷണൽ റീകണൈസെൻസ് ഓഫീസ് സാറ്റലൈറ്റിനെ ഭ്രമണപഥത്തിൽ എത്തിച്ചത്